തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയ്പരിധി നാളെ അവസാനിക്കും

എസ് എല്ലിൽ ഇന്ന് ഗോവ ബെംഗ്ലൂരു എഫ് സിയെ നേരിടും

ഉത്തർപ്രദേശിലെ വിന്ധ്യാഞ്ചൽ മേഖലയിലെ മിർസാപൂർ സോൻഭദ്ര ജില്ലകളിലെ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ്ട് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജൽ ജീവൻ പദ്ധതി വഴി വീടുകളിൽ കുടിവെള്ളം എത്തിയതോടെ അമ്മമാരുടെയും നമ്മുടെ സഹോദരിമാരുടെയും ജീവിതം കൂടുതൽ സുഗമമായതായി പ്രധാനമന്ത്രി പറഞ്ഞു പദ്ധതി യാഥാർഥ്യമായതോടെ മലിനജലം കുടിക്കുന്നതു മൂലം ഉണ്ടാകുന്ന കോളറ ടൈഫോയ്ഡ് എൻസഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ കുറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി

ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇന്നലെ മാത്രം രണ്ട് ലക്ഷത്തോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ബ്രസീൽ റഷ്യ ഇറ്റലി എന്നിവിടങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്

സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ വിഭാഗം എന്നിവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഭേദഗതി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭേദഗതി സംബന്ധിച്ച് ഉയർന്നു വരുന്ന ക്രിയാത്മകമായ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും സർക്കാർ തീർച്ചയായും പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്നാഥ് ബെഹ്റ കേരള പോലീസ് ആക്ടിൽ വരുത്തിയ ഭേദഗതി പ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ഇതു സംബന്ധിച്ച പ്രത്യേക നടപടിക്രമുട് തയ്യാറാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നൂർ്സ് ബെഹ്റ ഓർഡിനൻസ് യാതൊരു വിധത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പ് വരുത്തും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചാകും പ്രത്യേക നടപടിക്രമം തയ്യാറാക്കുകയെന്നും പോലീസ് മേധാവി പറഞ്ഞു രമേശ് ചെന്നിത്തല സൈബർ അധിക്ഷേപങ്ങൾ തടയാനെന്ന പേരിൽ ഇടതു സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാന സർക്കാരിന്റെ ദുഷ് ചെയ്തികളെ ആരും വിമർശിക്കരുതെന്നും വിമർശിച്ചാൽ ജയിലിലടക്കമെന്നമുള്ള ഭീഷണിയാണ് ഈ ഓർഡിനൻസ് എന്ന് വൃക്തമാകുന്നു നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം ഓർഡിൻസ് കൊണ്ടുവന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

വൈകീട്ട് മൂന്ന് വരെ പത്രിക പിൻവലിക്കാം

ഒരു സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ സാധുവാണെങ്കിൽ അത് പിന്നീട് റദ്ദാക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

മുരളീധരൻ ജനങ്ങളുടെ പണം അവിഹിത മാർഗ്ഗങ്ങളിലൂടെ അനർഹർ തട്ടിയെടുക്കുന്ന അവ്യസ്ഥിക്ക് അറുതി വരുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് പൂർ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി

പാല്പക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ എൻ

എ സ്ഥാനാർഥി സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മാവോവാദി ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട് വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ